തൊഴിൽ ദാതാക്കളാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രയോജനം ലഭിച്ചതായി സിപിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ്പുരി

രൂപയുടെ സ്മാർട്ട് ഫോണുകൾ നിർമിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്

വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണവും നൂതന ആശയങ്ങളും പ്രാവർത്തികമാക്കേണ്ട സമയമാണിത്

പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഈ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും ശ്രീ

രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കുട്ടികളെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്നതിനു പകരം അവർക്ക് താൽപര്യമുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഈ നയം അവസരമൊരുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ ഒറ്റദിവസം രണ്ടര ലക്ഷത്തോളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു

മന്ത്രിമാർ എം പി മാർ എം

മിക്ക ക്ക്ന്ദ്രങ്ങളും വനിതാ ശിശു സൌഹൃദ രീതിയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്

നിര്യാണത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം അറിയിച്ചു

രോഗപ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ആന്റിജൻ ആർ

ഇതിനായി ഐ സി എം ആർ നിർദ്ദേശമനുസരിച്ച് സർക്കാർ പ്രത്യേക മാർഗനിർദ്ദേങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്

കൊറോണ വൈറസ് വ്യാപനമുണ്ടായി ആറുമാസത്തിനുശേഷമുള്ളിു സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ലോകാരോഗ്യ ഉസ്ക്ലടനയുടെ അടിയന്തര സമിതിയാണ് മുന്നറിയിപ്പ് നൽകിയ്ത് കോവിഡ് കാലത്ത് ഇത് നാലാം തവണയാണ് അടിയന്തര് സമിതി യോഗം ചേർന്നത് പുതിയ സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചും സമിതി ആലോചിക്കുന്നുണ്ടെന്ന് സംഘടന വ്യക്തമാക്കി

പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ നവീകരണം ലക്ഷ്യമിടുന്ന പദ്ധതിയ്ക്ക് മറ്റെന്നാൾ തുടക്കമാകും

പ്രേമചന്ദ്രൻ എം

ബൈപാസ് ്വികസനം സംബന്ധിച്ച് നടന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനം

ബംഗാൾ ഉൾക്കടലിൽ ചൊവ്വാഴ്ചയോടെ ന്യൂനമർദം ശക്തിപ്രാപിച്ച് കേരളത്തിൽ ശക്തമായ മഴ പെയ്യാനിടയാക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവന ന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഒഴികെയുള്ള ജില്ലക ളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിലും കനത്ത മഴ തുടരുകയാണ്

ഇതിൽ ഏഴു ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എൽ ഭരണസമിതിയുടെ നിർണായക യോഗം ഇന്ന്

എല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനം ഇന്നുണ്ടാകും

മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം പഞ്ചാബ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു

എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്

കോവിഡ് പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പിനോട് അനുബന്ധിച്ച് ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ രാജ്യത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജയിൽ പങ്കെടുക്കും